ലോകകപ്പ് ക്രിക്കറ്റ് അവസാന സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ൾ ൽ ൾ ബിജെപി ഹിന്ദി മേഖലയിലെ മാത്രം പാർട്ടിയാണെന്ന തെറ്റിധാരണ രാജ്യമാകെ നേടിയ വിജയത്തോടെ തകർന്നെന്ന് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബിജെപിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കാത്ത മേഖലകളില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും രാഷ്ട്രീയ പണ്ഡിതർ പറയുന്നത് ഹിന്ദി പാർട്ടിയാണെന്നാണ് വാരാ ണസിയിൽ വോട്ടർമാർക്ക് നന്ദി പറയുകയായിരുന്നു നരേന്ദ്രമോദി രാഷ്ട്രീയപരമായി തൊട്ടുകൂടായ്മയും അക്രമങ്ങളും ബിജെപി നേരിടുന്നുണ്ട് കേരളത്തിലും കശ്മീരിലും ബംഗാളിലും ത്രിപുര യിലും ഉണ്ടാകുന്ന ഇത്തരം കേസുകൾ മാധൃമങ്ങളിൽ വരുന്നി ല്ലെന്നും മോദി കുറ്റപ്പെടുത്തി

ഒരുപക്ഷെ ഇന്ത്യ യിൽ ഇത്തരം കൊലപാതകങ്ങൾ നേരിടുന്നു ഏക പാർട്ടി ബിജെപി യാണ് അക്രമങ്ങൾക്ക് നിയമസാധുത നൽകുകയാണെന്നും ഇത് ബിജെപി നേരിടുന്ന അപകടമാണെന്നും മോദി കുറ്റപ്പെടുത്തി

മറ്റന്നാൾ വൈകീട്ട് ഏഴിന് രാഷ്ട്ര പതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ നരേന്ദ്രമോദിക്കും മന്ത്രിമാർക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ബിംസ്റ്റക്ക് കൂട്ടായ്മയിലെ രാഷ്ട്ര തലവൻമാരെ ക്ഷണിച്ചതായി വിദേശകാരൃമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചു ബംഗ്ലാദേശ് ഇന്ത്യ മ്യാൻമാർ ശ്രീലങ്ക തായ്ലന്റ് ഭൂട്ടാൻ നേപ്പാൾ എന്നീ രാജൃങ്ങൾ ഉൾപ്പെട്ടതാണ് ബിംസ്റ്റക്ക് കിർഗിസ്ഥാൻ പ്രസിഡന്റിനേയും മൌറീഷ്യസ് പ്രധാനമന്ത്രിയേയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ കോൺഗ്രസ് അധൃക്ഷ സ്ഥാനത്ത് നിന്ന് രാജി വെക്കുമെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുകയാണെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാന രഹിതമാ ണെന്ന് കോൺഗ്രസ് വൃക്തമാക്കി അടച്ചിട്ട മുറിക്കകത്ത് നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന്റെ പവിത്രത മാധ്യമ ങ്ങളടക്കം എല്ലാവരും മാനിക്കണമെന്ന് പാർട്ടി മുഖ്യവക്താവ് രൺദീപ് സുർജെവാല ന്യൂഡൽഹിയിൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതിനിടെ കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പട്ടേലും കെ

വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമായി ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച്ച നടത്തി പദവിയിൽ തുട രാനില്ലെന്നും പകരക്കാരനെ കണ്ടെത്താൻ സാവകാശം എടുക്കാ മെന്നും അദ്ദേഹം അവരെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇത്തരം വാർത്തകൾ ശരിയല്ലെന്ന് അഹമ്മദ് പട്ടേൽ പിന്നീട് ട്വിറ്ററിൽ അറിയിച്ചു സംഘടനാപരമായി ചെയ്യേണ്ട ജോലി കളാണ് കൂടിക്കാഴ്ച്ചയിൽ ചർച്ച ചെയ്തതെന്നും മറ്റെല്ലാ ഊഹാപോ ഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും അഹമ്മദ് പട്ടേൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശുക്തി കേന്ദ്രങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടതായി ന്യൂഡൽഹിയിൽ ചേർന്ന രണ്ട് ദിവ സത്തെ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ വിലയിരുത്തി തൊഴിലില്ലായ്മ ഉൾപ്പെടെ ജീവൽ പ്രശ്നങ്ങൾ പുൽവാമയിലേക്കും ബാലക്കോട്ടി ലേക്കും മോദിയിലേക്കും ബിജെപി വിജയകരമായി തിരിച്ചുവിട്ടുവെന്ന് യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു പ്രതിപക്ഷം ഒന്നടങ്കം മോദിയെ നേരിട്ടാലും ഒന്നും സംഭ വിക്കുമായിരുന്നില്ലെന്നും അദ്ദേഹം പുറഞ്ഞു പാർട്ടിയുടെ വോട്ടുചോർച്ചയിലേക്ക് നയിച്ച കാര്യങ്ങൾ പൊളി റ്റ്ബ്യൂറോ ചർച്ച ചെയ്തതായി യെച്ചൂരി പറഞ്ഞു അടുത്തമാസം ഏഴ് മുതൽ ഒമ്പത് വരെ പാർട്ടി കേന്ദ്ര കമ്മറ്റി ചേർന്ന് പരാജയ കാരണങ്ങൾ കൂടുതലായി വിലയിരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിനായി പ്രത്യേക നിയമ നിർമ്മാണം നടത്തുമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യുഡിഎഫ് നേതൃയോഗം അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാന വിഷ യങ്ങളിൽ ഒന്നായിരുന്നുവെന്നും അത് വോട്ടർമാരെ സ്വാധീനിച്ചു വെന്നും യോഗ തീരുമാനങ്ങൾ അറിയിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മത ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും നരേന്ദ്രമോദിയുടേയും പിണറായി വിജയന്റേയും ഗവൺമെന്റുകൾക്ക് കീഴിൽ പീഡനം അനു ഭവിക്കുന്നതായി യോഗം വിലയിരുത്തി ബിജെപി സംഘ്പരിവാർ കടന്നുകയറ്റത്തെ സംസ്ഥാനത്ത് ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞത് യുഡിഎഫിനാണെന്നും ചെന്നിത്തല പറഞ്ഞു

ഫാസിസത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ചെന്നിത്തല അറിയിച്ചു ആലപ്പുഴയിലെ പരാജയവും ചർച്ചു ചെയ്യും പ്രാദേശികമായി മുന്നണി ഇല്ലാതായതും ദേശീയതയും വർഗീ യതയും ആളിക്കത്തിച്ചതുമാണ് മോദിയുടെ തിരിച്ചുവരവിന് കാരണ മായതെന്നും യുഡിഎഫ് യോഗം വിലയിരുത്തി

കെപിസിസി മുൻ പ്രസിഡന്റുമാരുടേയും വർക്കിംഗ് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ഡിസിസി പ്രസിഡന്റുമാർ പാർലമെന്റ് മണ്ഡ ലങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ എന്നിവരുടെ യോഗം ഉച്ചക്ക് രണ്ടിനും കെപിസിസി രാഷ്ട്രീയ കാര്യ സമിതി യോഗം വൈകീട്ട് അഞ്ചിനുമാണ് ചേരുക വോട്ടർമാരോട് ന്ന്ദി അറിയിക്കാൻ വയനാ ട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം സംബന്ധിച്ച അന്തിമ രൂപവും യോഗത്തിലുണ്ടാകും ശബരിമലയിൽ വഴിപാടായി കിട്ടിയ സ്വർണവും വെള്ളിയും കാണാനില്ലെന്ന വാർത്ത ചില മാധൃമങ്ങളുടെ ഭാവനാസൃഷ്ടി മാത്ര മായിരുന്നുവെന്ന് തെളിഞ്ഞതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറി യിച്ചു ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ പെൻഷൻ കിട്ടാതെവന്നതിനെ ്തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും അടിയന്തര നടപടികൾ പൂർത്തിയാക്കണമെന്ന് കോടതി നിർദേശി ക്കുകയുമായിരുന്നു ഇതേതുടർന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റർമാർ രേഖകൾ പരിശോധിക്കുകയും സ്വർണം വെള്ളി എന്നിവയുടെ കണ ക്കിൽ വൃത്യാസമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു ശബരിമലയിലെ വഴിപാട് സ്വർണവും വെള്ളിയും കാണാതായെന്ന് വസ്തുതാ വിരുദ്ധമായി മാധൃമങ്ങൾ നൽകുന്ന വാർത്ത വർഗീയ ശക്തികൾക്ക് വളം നൽകുമെന്ന് കടകംപള്ളി അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ വഴിപാടായി ലഭിച്ച സ്വർണത്തിൽ കുറവു വന്നി ട്ടില്ലെന്ന് ഓഡിറ്റ് വിഭാഗം ഇന്നലെ നടത്തിയ പരിശോധനയിൽ കണ്ടെ ത്തിയതായി തിരുവിതാംകൂർ ദേവസം ബോർഡ് അറിയിച്ചു ഹൈക്കോടതി നിയോഗിച്ച മൂന്നംഗ സംഘം മഹസ്സർ രേഖകൾ പരി ശോധിച്ച് വൃക്തത വരുത്തിയതിനാൽ സ്ട്രോങ്ങ് റൂം തുറന്നു പരി ശോധിക്കേണ്ട ആവശ്യമില്ലെന്നും കാണാതായതായി പറയുന്ന നാൽപത് കിലോ ഗ്രാം സ്വർണം സ്ട്രോങ്ങ് റൂമിൽ തന്നെയുണ്ടെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവാദത്തിൽ സ്ട്രോങ്ങ് റൂം തുറന്നു പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന ദേവസ്വം ബോർഡിന്റെ നിലപാട് സംശയകരമാണെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി അമ്പോറ്റി പത്തനംതിട്ടയിൽ പറഞ്ഞു നിജസ്ഥിതി പുറത്തുകൊണ്ടുവരാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാക ണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഗവൺമെന്റിന് അധിക സാമ്പത്തിക ബാധൃത വരാത്ത വിധത്തിലാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ചത് വർദ്ധിപ്പിച്ച സീറ്റു കളിലെ പ്രവേശനം നിലവിലെ വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും മാർച്ചിൽ നടന്ന ഹയർ സെക്കൻറി വൊക്കേഷനൽ ഹയർ സെക്കന്ററി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ഉച്ച കഴിഞ്ഞ് മൂന്നിന് ഹയർ സെക്കന്റി വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യ മാകും

സംസ്ഥാനാടിസ്ഥാനത്തിലാണ് പ്രവേ ശനം

ലോകകപ്പ് ക്രിക്കറ്റിലെ അവസാന സന്നാഹ മത്സരത്തിൽ കാർഡിഫിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും വൈകീട്ട് മൂന്നി നാണ് മത്സരം ആദ്യ സന്നാഹ മത്സരത്തിൽ ന്യൂസിലന്റിനോട് ഇന്ത്യ തോറ്റിരുന്നു ഇന്നലെ അവസാന സന്നാഹ മത്സരത്തിൽ ഇംഗ്ലണ്ട് അഫ്ഗാനി സ്ഥാനെ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേ ലിയ അഞ്ച് വിക്കറ്റിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി മ്യൂണിക്കിൽ ഷൂട്ടിംഗ് ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യ യുടെ രാഹി സർക്കോബത്തിന് സ്വർണം

ഇടുക്കി ഉപ്പുതറയിൽ അമ്മയുടെ കാമുകന്റെ ക്രൂര മർദ്ദനത്തിനിരയായ കുട്ടിക്ക് വീണ്ടും മർദ്ദനം അമ്മയിൽ നിന്നാണ് കൂട്ടിക്ക് ഇത്തവണ മർദ്ദനമേറ്റത്

ജയിലിൽ പോകാൻ കാരണം കുട്ടിയാണെന്ന് പറഞ്ഞായിരുന്നു അമ്മയുടെ മർദ്ദനം

പരിക്കേറ്റ കുട്ടി ഉപ്പുതറ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ മുൻകരുതൽ സ്വീക രിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗലക്ഷണങ്ങൾ കാണു ന്നവർ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നും ആഘോഷങ്ങളും ചടങ്ങുകളും നടത്തുന്നതിന് ഒരാഴ്ച്ച മുൻപേ പ്രദേ ശത്തെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും ജില്ലാ മെഡി ക്കൽ ഓഫീസർ ഡോ

ജയശ്രീ അറിയിച്ചു

ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് പത്തനം തിട്ട ജില്ലയിലെ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തി

ഇടുക്കി ജില്ലയിൽ ഇ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന കർമ്മപ ദ്ധതിക്ക് തുടക്കമായി

പച്ചക്കൊളുന്തിനു മാസാമാസം അടിസ്ഥാനവില നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറായി ഡോ സാബു തോമസിനെ ചാൻസലർ കൂടിയായ ഗവർണർ പി സദാശിവം നിയമിച്ചു സർവകലാശാല സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിലെ അധ്യാപകനായ സാബു തോമസ് ആക്ടിംഗ് വൈസ് ചെയർമാനായി പ്രവർത്തിച്ചുവരികയായിരുന്നു നാല് വർഷത്തേക്കാണ് നിയമനം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സ്കൂൾ വിദ്യാഭ്യാസം ഒരു കുടക്കീഴിലാക്കുന്ന തീരുമാനം നടപ്പാക്കുന്നതിന് മുന്നോടിയായി മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് അധ്യാപക അനധ്യാപക സംഘടനകളുമായി ചർച്ച നടത്തും

ഇതിന്റെ ഭാഗമായാണ് മന്ത്രി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തു ന്നത് ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് വിദ്യാലയങ്ങളും പരിസരവും അപകട രഹിതമാണെന്ന് ഉറപ്പുവരുത്താൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ

സുമേഷ് നിർദേശം നൽകി ജില്ലയിലെ ഹൈസ്കൂൾ പ്രധാനാധ്യാപകർക്കായി സംഘടിപ്പിച്ച ശിൽപശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ല യിലെ സ്കൂൾ പരിസരങ്ങൾ ലഹരി വിമുക്തമാക്കാൻ ശിശു സംര ക്ഷണ സമിതി തീരുമാനിച്ചു ഇതിനായി എക്സൈസ് വകുപ്പും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും മുൻകയ്യെടുക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ഇത്തവണ ഉണ്ടായതെന്ന് സിപിഐഎം കേന്ദ്രകമ്മ റ്റിയംഗം എം

ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു

ഇടതുപക്ഷ വോട്ടുകൾ ഇത്രയുമധികം ചോർന്നു പോയ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക സാഹിത്യ പുരസ് കാരം നോവലിസ്റ്റ് ടി

രാമകൃഷ്ണന് ലഭിച്ചു അദ്ദേഹത്തിന്റെ സുഗന്ധിഎന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലിനാണ് പുരസ് കാരം